ഷൂട്ടിംഗിൽ സ്വർണം നേടിയത് സൌരഭ് ചൌധരി ജനജീവിതം തകർത്തെറിഞ്ഞ പ്രളയത്തിൽ നിന്നും കേരളം കരകയറുന്നു

എന്നാൽ സൂരക്ഷിതമായ സ്ഥിതിയെത്തുന്നത് വരെ രക്ഷാപ്ര വർത്തനം തുടരാനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനം വെള്ളമിറങ്ങുന്ന മേഖകളിലെ ശൂചീകരണപ്രവർത്തനങ്ങൾക്കായിരിക്കും ഇനി കൂടുതൽ പ്രാധാനൃം നൽകുക

ആലപ്പുഴ ജില്ലയിലെ കൂട്ടനാട്ടിൽ നിന്നും ര ൂലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതായി ഗവൺമെന്റ് അറിയിച്ചു ഒന്നരലക്ഷത്തിലേറെ പേരെ രക്ഷപ്പെടുത്താനുമായി അതേസമയം എടത്വാ ചക്കുളത്ത്കാവ് ഭാഗങ്ങളിൽ പതിനായിരത്തിലധികം ആളുകൾ ഇപ്പോഴും ദൂരിതാശ്വാസ കൃാംപുകളിലേക്ക് മാറാൻ തയ്യാറാകാതെ നിൽക്കുകയാണ് വെള്ളം ഇറങ്ങിത്തു ടങ്ങിയതിനാൽ എറണാകൂളത്തെ രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിച്ചു

തൃശൂരിലെ ചാലക്കൂടി മാള ഭാഗങ്ങളിലും വെള്ളക്കെട്ടിന് കുറവു ട്ടടട തൃശൂർ ജില്ലയിൽ വെള്ളക്കെട്ട് കൂറ്റഞ്ഞിട്ടു ് വിവിധ ക്യാമ്പുകളിലായി ര ര ലക്ഷത്തിലധികം പേർ ഇപ്പോഴും കുഴിയുന്നു

ട്ടട്ടട ട്ടടട മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയെന്ന് വ്യാജസന്ദേശം അയച്ച നെന്മാറ സ്വദേശി അശ്വിൻ ബാബുവിനെ പോലീസ് അറച്റ്റ്ചെയ്ത ഇയാളെ ജാമൃത്തിൽ വിട്ടയച്ചു കട്ടപ്പനയിൽ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ കൃാംപിനെക്കുറിച്ച് സമൂഹമാധൃമങ്ങളിൽ കുപ്രചാരണം നടത്തിയ സംഭവങ്ങളിൽ ര ു യുവാക്കളും അറസ്റ്റിലായി കാഞ്ചിയാർ സ്വദേശികളായ പുതുക്കാട്ടിൽ അരുൺ എം നായർ ആറാനിയിൽ ഡെൻസൺ എന്നിവരാണ് പിടിയിലായത്

കൃാമ്പിലെത്തിക്കുമ്പോൾ കുട്ടിക്ക് പനി ഉ ായിരുന്നു

സംസ്ഥാനുത്തെ പള്ളികളും ഇൌദ്ഗാഹൂകളും പെരുന്നാൾ നമസ്കാരത്തിനായി സജ്ജമായി ട്ടട്ടട കൊച്ചി പുതൂവൈപ്പിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു

പുതുവൈപ്പ് എൽഎൻജി ടെർമിനലിന് സമീപം ഇന്ന് രാവിലെയായിരുന്നു സംഭവം

വാഴമൂട്ടം സ്വദേശികളായ മധൂ രജനി ദമ്പതികളാണ് മരിച്ചത് ഇന്ന രാവിലെ യായിരുന്നു അപകടം ഇരുവരും സംഭവസ്ഥലത്ത് തൽക്ഷണം മരിക്കുകയാ യിരുന്നു

കൊച്ചി നേവൽ ബേസിലെ വിമാനത്താവളത്തിൽ നിന്ന് പരിമിതമായ അളവിൽ ആഭ്യന്തര സർവ്വീസുകൾ ആരംഭിച്ചിട്ടു ്

വായ്പാ തിരിച്ചടവ് കാലാവധി അഞ്ച് വർഷത്തേക്ക് പുനക്രമീകരിക്കാനും തീരുമാനിച്ചു പ്രളയക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും തുടർനടപടികളും ചർച്ചചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റ് സർവകക്ഷി യോഗം വിളിച്ചു

സംസ്ഥാന ഗവൺമെന്റിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഉത്തരവ്